ചിരാഗ് ഷെട്ടി സത്വിക് സായ്രാജ് റങ്കി റെഡ്നി സഖ്യം സെമിയിൽ

ദുഷ്യന്ത് ചൌട്ടാലയുടെ ജൻനായക് ജനതാ പാർട്ടിയുമായി ചേർന്നായിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്

ബി ജെ പി ഹരിയാന നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചണ്ഡിഗറിൽ ചേർന്ന് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കും

ഹരിയാനയിൽ സുസ്ഥിരമായ ഗവൺമെന്റാണ് ലക്ഷ്യമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലു് പുറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ശിവസേനാ അംഗങ്ങളുടെ യോഗം മുംബൈയിൽ ഇന്ന് ചേരും

ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷായും ശ്രീ ഉദ്ദവ് താക്കറെയും ദീപാവലി ആഘോഷത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ചർച്ച നടത്തും

അസർബൈജാനിലെ ബക്കുവിൽ നാം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കണം

ഭീകരത ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ചേരിചേരാ രാഷ്ട്രങ്ങൾ എല്ലാ സ്വാധീനങ്ങളും ചെലുത്തണമെന്ന് ശ്രീ

യു എൻ രക്ഷാ സമിതിയിൽ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം

നായിഡു ആവശ്യപ്പെട്ടു

ചേരി ച്ചേരിട്ടു രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം മെച്ചപ്പെടുത്താൻ ഉച്ച്ക്കോടി സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രസ്ട്രീത്ാവനയിൽ അറിയിച്ചു

കമ്പനി നികുതി കുറയ്ക്കൽ പുതിയ കമ്പനികൾക്കും നിക്ഷേപകർക്കുമായി നികുതി ആനുകൂല്യം ബിസിനസ്സ് എളുപ്പമാക്കാൻ റാങ്ക് മെച്ചപ്പെടുത്തുക തുടങ്ങിയ നിക്ഷേപക സൌഹൃദപരമായ നടപടികൾ ഇന്തൃ അടുത്തിടെ സ്വീകരിച്ചതിനെപ്പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യയുടെ വളർന്നുവരുന്ന ഉരുക്ക് വൃവസായത്തിൽ പങ്കാളികളാകാൻ ജപ്പാൻ ഉരുക്ക് വ്യവസായമേഖലയോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജപ്പാനിലെ പ്രധാന ഉരുക്ക് വ്യവസായ നിർമ്മാതാക്കളായ ജെ എഫ് ഇ സ്റ്റീൽ കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റ് മസായുക്തി ഹിറോസേയുമായി അദ്ദേഹം ചർച്ച നടത്തി നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷന്റെ ആഗോള ബിസിനസ്സ് ഡെവലപ്മെന്റ് പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തി

യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ ഇളവ് നൽകിയിട്ടുണ്ട് ഇന്ത്യയും ചൈനയും ബ്രിക്സ് രാഷ്ട്ര സംഘടനയുടെ ഭാഗമാണ് ബ്രസീൽ പ്രസിഡന്റ് ജെയിർ ബോൾസോനാരോ ഇന്നലെ ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇരുനേതാക്കളും വൃക്തമാക്കി

ശ്രീധരൻപിള്ളയെ മിസോറാം ഗ്രീൻണറായി നിയമിച്ചു

ബിജെപി കേരള സംസ്ഥാന പ്രസിഡന്റാണ് മിസോറാം ഗവർണറായി നിയമിതനായ ശ്രീ ശ്രീധരൻപിള്ള

രാധാകൃഷ്ണ മാത്തൂരിനെ ലഡാക്കിലെ ലഫ്റ്റ്നന്റ് ഗവർണറായും നിയമിച്ചിട്ടുണ്ട് ജമ്മു കശ്മീരിനെ രണ്ടു കേന്ദ്രഭരണപ്രദേശങ്ങളായി വിഭജിച്ചതിനെ തുടർന്നാണ് ലഫ്റ്റനന്റ് ഗവർണർമാരെ നിയമിച്ചത് ജമ്മു കൾമീരിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻ മധ്യസ്ഥൻ ദിനേശ്വർ ശർമയെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു മിസോറാം ഗവർണറാകുന്ന മൂന്നാമത്തെ മലയാളിയാണ് ശ്രീ

ശ്രീധരൻപിള്ള കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം എടുത്തിട്ടുണ്ട്

ജനസേവനത്തിനുള്ള ഉപാധിയായാണ് ഗവർണർ സ്ഥാനത്തെ കാണുന്നതെന്നും ശ്രീ

ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

്അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ട്റുടെ അദ്ധ്യക്ഷതയിൽ യോഗം ചേർന്നു

ബാക്കി ഉടനെ പൂർത്തിയാക്കുമെന്ന് മെഡിക്കൽകോളേജ് പ്രിൻസ്പിപ്പൽ ഡോ

ചിരാഗ് ഷെട്ടിയും സത്വിക് സായിരാജ് റങ്കിറെഡ്ഡിയും ഡെൻമാർക്കിന്റെ സഖ്യത്തെയാണ് തോൽപിച്ചത്

നേരത്തെ വനിതാ സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ നിന്ന് ഇന്ത്യൻ താരങ്ങളായ സൈനാ നെഹ്വാളും പി വി സിന്ധുവും പുറത്തായിരുന്നു

ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധൃത ഇടുക്കി മലപ്പുറം കോഴിക്കോട് ക്കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

അഞ്ച് വർഷത്തേക്കാണ് ദേശീയ അക്രഡിറ്റേഷൻ കൌൺസിൽ അംഗീകാരം നൽകിയത്

മികച്ച അക്കാദമിക് നിലവാരമാണ് കോളേജിനുള്ളത്

കേന്ദ്ര കമ്പനികാരൃ വകുപ്പാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് കമ്പനികൾ സാമൂഹിക ഉത്തരവാദിത്ത മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള സംരംഭങ്ങൾ മുൻനിർത്തിയാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത് വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും പ്രോത്സാഹനം നൽകുകയാണ് ലക്ഷ്യം

ഗവൺമെന്റ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധം